കേരളത്തിലെത്തിയ നിയുക്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തിരുവനന്തപുരത്ത് ഊഷ്മള സ്വീകരണം സത്യപ്രതിജ്ഞ നാളെ രാജ്ഭവനിൽ

പാലാ ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ജോസ് ടോമിന് രണ്ടില ചിഹ്നം ലഭിക്കില്ല ജോസ് ടോം സ്വതന്ത്രനായി മത്സരിക്കും ന് പ്രളയദുരിതാശ്ചാസ കൃാമ്പുകളിൽ കഴിയുന്നുപ്പിൽക ഓണക്കോടി വിതരണം ചെയ്യാൻ മന്ത്രിസഭാ തീരുമാനം

ശരാശരിയിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് മുൻനിരയിലെത്താൻ അധ്യാപകർ പിന്തുണ നൽകണമെന്ന് മുഖ്യമന്ത്രി പിണ്കാട്ടി വിജയൻ

പോൾ മുത്തൂറ്റ് വധക്കേസ് എട്ട് പേരുടെ ജീവപരൃന്തം റദ്ദാക്കി

എയർപോർട്ടിൽ നിന്ന് രാജ്ഭവനിലെത്തിയ അദ്ദേഹത്തെ രാജ്ഭവൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോ

നിയുക്ത ഗവർണർക്കൊപ്പം കൂടുംബാംഗങ്ങളും ബന്ധുക്കളും എത്തിയിട്ടുണ്ട്

ആരിഫ് മുഹമ്മദ് ഖാന്റെ സത്യപ്രതിജ്ഞ നാളെ രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും

ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും

ആരിഫ് മുഹമ്മദ് ഖാനുമായി മുഖ്യമന്ത്രി പിണിട്ടുയി വിജയൻ രാജ്ഭവനിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി

കൂടൂതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

പ്രളയ ദുരിതാശ്വാസമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിർമിച്ചു നൽകിയ വീടുകളിൽ ഈ ഓണക്കാലയളവിൽ ഗൃഹപ്രവേശം നടത്തും ജില്ലാ ചുമതലയുള്ള മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചാണ് ചടങ്ങ് നടത്തുക

എം എൽ സംയുക്ത സംരംഭത്തിലെ ഭെല്ലിന്റെ കൈവശമുള്ള ഓഹരികൾ ഏറ്റെടുക്കുന്നതിനായി കേരള ഗവൺമെന്റും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡും തമ്മിൽ വിൽപ്പന കരാർ ഒപ്പിടുന്നതിന് അനുമതി നൽകാൻ തീരുമാനമായി ഇതു സംബന്ധിച്ച കരട് വിൽപ്പനകരാർ മന്ത്രിസഭ അംഗീകരിച്ചു ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡും കേരള ഗവൺമെന്റും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ഭെൽ ഇ

നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള അത്യാന്താധുനിക സംവിധാനമാണ് ഓട്ടോ ലാബ് അതാതു പ്രോജക്ടിന്റെ പ്രവർത്തിമേഖലയിൽവെച്ച് തന്നെ ഗുണനിലവാര പരിശോധനകൾ നടത്തുവാനും സ്ാമ്പിൾ ശേഖരിക്കാനും അവയുടെ ഗുണ്ടമേന്മ വിലയിരുത്താനും ഇതിലൂടെ സാധിക്കും

ദേശീയ അദ്ധ്യാപക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

ഒരു ക്വാസ്സിൽ മികവുള്ള വിദ്യാർത്ഥികളും ശരാശരിക്ക് താഴെയുള്ള വിദ്യാർത്ഥികളും ഉണ്ടാകും എന്നാൽ ശരാശരിയ്ക്ക് താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് അദ്ധ്യാപകർ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഒന്നാം പ്രതി ജയചന്ദ്രൻ മൂന്നാം പ്രതി സത്താർ നാലാം പ്രതി സുജിത് അഞ്ചാം പ്രതി ആകാശ് ശശിധരൻ ആറാം പ്രതി സതീശ് കൂമാർ ഏഴാം പ്രതി രാജീവ് കുമാർ എട്ടാം പ്രതി ഷിനോ പോൾ ഒമ്പതാം പ്രതി ഫൈസൽ എന്നിവരുടെ ജീവപര്യന്തമാണ് കോടതി റദ്ദാക്കിയത് രണ്ടാം പ്രതി കാരി സതീഷ് അപ്പീൽ ഫയൽ ചെയ്തിരുന്നില്ല

ചിമ്മിനി ഡാം ചാലക്കുടി താലൂക്കിലെ വരന്തരപ്പിളളി പഞ്ചായത്തിലെ ചിമ്മിനി ജലസംഭരണി നാളെ രാവിലെ തുറക്കുന്നതിന് ജില്ലാ കളകൂർ ഉത്തരവിട്ടു

പുത്തുമലയിൽ സംഭവിച്ചത് സാധാരണ മണ്ണിടിച്ചിൽ അല്ലെന്ന വിദഗ്ധരുടെ അഭിപ്രായം ഇപ്പോൾ വിശ്വസിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു

പ്രളയ ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാജ്ഞലികൾ അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത്

ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നൽകിയ ക്ലത്തിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസ് കേസ് എടുക്കുകയായിരുന്നു ഗവൺമെയ്യുന്നുകൂകൊച്ചി നഗരസഭയ്ക്കും ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്

മുത്തൂറ്റിലെ ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സമരത്തില്ലാണ് ദ ക്രാഡിൽ കോഴിക്കോട് ജില്ലയിലെ സമ്പൂർണ്ണ ശിശുപരിപാലനത്തിനുള്ള സമഗ്ര പദ്ധതിയായ ദ ക്രാഡിൽ മന്ത്രി ടി

അങ്കണവാടി ആധുനിക വത്കരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എ